ഡി എഫിന് മുന്നേറ്റം

നിയമലംഘനം തടയുകയാണ് ലക്ഷ്യമെന്ന് സുപ്രീംകോടതി

അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് യാക്കോബായ വിഭാഗം ഹർത്താൽ ആചരിക്കുന്നു ഇന്ന് ലോക വിനോദസഞ്ചാരദിനം

പാലാ ഉപതിരഞ്ഞെടുപ്പ് പാലാ ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എൽ ഡി

തുടർന്ന് വോട്ടിംഗ് യന്തത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി ആദ്യ മണിക്കൂർ മുതൽ എൽ ഡി എഫിന്റെ മാണി സി

മണ്ഡലത്തിലെ മുൻ എം

മാണിയോട് മൂന്നു തവണ മത്സരിച്ച് പരാജയപ്പെട്ട എൻ സി പി നേതാവാണ് മാണി സി കാപ്പൻ

വോട്ടെണ്ണിയ കടനാട് രാമപുരം മേലുകാവ് മൂന്നിലവ് ഭരണങ്ങാനം ് ത്യലനാട് തലപ്പലം എന്നീ ഏഴ് പഞ്ചായത്തുകളിലും മാണി ്സി കാപ്പനാണ് മുന്നിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ എൽ ഡി

ഡി എഫിന്റെ ജോസ് ടോം ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്

ഡി എ യുടെ എൻ ഹരി മൂന്നാം സ്ഥാനത്തും തുടരുന്നു

ലോകഫോറത്തിൽ രാജ്യത്തിന്റെ പ്രകടനം ശക്തവും പ്രവർത്തന അധിഷ്ഠിതവുമായ ഫലമായിരിക്കും കൊണ്ടുവരിക എന്ന് ഐക്യരാഷ്ട്രസംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരാംഗം സയദ് അക്ബറുദ്ദീൻ വിശ്വാസം പ്രകടിപ്പിച്ചു മരട് ഫ്ളാറ്റ് കൊച്ചി മരടിലെ അനധികൃത ഫ്ളാറ്റ് നിർമ്മാണ കേസിൽ നിയമലംഘനം തടയുകയാണ് ലക്ഷ്യമെന്ന് സുപ്രീംകോടതി

ഇതിന് പിന്നാലെയാണ് കോടതിയുടെ പരാമർശം

ഡി

ഡി

സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്

കിറ്റ്സ് ആംഫി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ ടൂറിസം മേഖലയിലെ വിദഗ്ദ്ധർ വിവിധ സെഷനുകളിൽ സംസാരിക്കും ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

ഇന്നലെ പിറവം സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് കോടതി ഉത്തരവ് പ്രകാരം യാക്കോബായ വിഭാഗക്കാരെ പ്പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ഹർത്താൽ ഇതുവരെ സമാധാനപരമെന്ന് പോലീസ് അറിയിച്ചു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന പിറവം പള്ളി ജില്ലാഭരണകൂടം ഇന്നലെ ഏറ്റെടുത്തിരുന്നു പള്ളിയുടെ താക്കോൽ ഇന്ന് കോടതിയ്ക്ക് കൈമാറുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു

മണി ആരോഗ്യരംഗത്ത് നടത്തിവരുന്ന സംസ്ഥാന ഗവൺമെന്റ് അഴിച്ചുപണികൾ അഭിനന്ദനാർഹമാണെന്നും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ ഫലപ്രദവും കാര്യക്ഷമവുമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഇതുവഴി സാധിച്ചെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി

ലോട്ടറി തട്ടിപ്പ് ലോട്ടറി കച്ചവടത്തിന്റെ മറവിൽ സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തിയ രണ്ടുപേരെ വയനാട് മാനന്തവാടി പോലീസ്സ് അറസ്റ്റ് ചെയ്തു ദാരക അനുഗ്രഹലോട്ടറി ഏജൻസീസ് നടത്തിവിരുന്ന് വെള്ളമുണ്ട ആലഞ്ചേരി കുഞ്ഞു വീട്ടിൽ ചന്ദ്രശേഖരൻ പ്രപിച്ച്ങ്കോട് കണ്ണാംതൊടി വീട്ടിൽ മുസ്തഫ എന്നിവരാണ് അറസ്റ്റിലായത്

എഫ് സ്ഥാനാർത്ഥി മനു

വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയശേഷമാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കുന്നത്

എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മനു സി പുളിക്കൽ നിലവിൽ യുവജനക്ഷേമ ബോർഡ് അംഗമായി പ്രവർത്തിക്കുകയാണ്

അന്താരാഷ്ട്ര തലത്തിൽ വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കകുറിച്ച് സംസ്ഥാന ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആകാശവാണിയോട്

കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ മേഖലാതല എംപവേഡ് സമിതി ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും

പവർ ലിഫ്റ്റിംഗ് രാജ്യം കായിക രംഗത്ത് കൂടുതൽ നേട്ടം കൈവരിക്കുകയാണെന്നും ഇടുക്കി കായിക ലോകത്തിൽ പുതിയ തലങ്ങൾ കീഴടക്കുകയാണെന്നും മന്ത്രി എം

ദേശീയ ക്ലാസിക് പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇടുക്കി മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സൂര്യനെല്ലി സ്വദേശികളായ പാണ്ടിരാജ് സുബ്ബയ്യ തങ്കരാജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സൂര്യനെല്ലി മൂന്നാർ ഭാഗങ്ങളിലെ വിവിധ കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന ഇടനിലക്കാർക്ക് കഞ്ചാവ് നൽകുന്ന മൊത്ത വ്യാപാരികളാണ് ഇവർ

ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്കാണ് മൽസരങ്ങൾ ആരംഭിക്കുന്നത് ചാമ്പ്യൻഷിപ്പ് ദിവസം നീണ്ടുനിൽക്കും

ജന്മദിന സമ്മേളനത്തിൽ കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിങ്ങ് മുഖ്യാതിഥിയായി പങ്കെടുക്കും

പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കൊറിയ ബാഡ്മിന്റൺ കൊറിയ ഓപ്പൺ ബാഡ്മിന്റണിൽ പുരുഷ സിംഗിൾസിന്റെ കാർട്ടറിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പാരുപള്ളി കശ്യപ് ഡെൻമാർക്കിന്റെ ജാൻ ഒ ജോർഗെൻസെനുമായി ഏറ്റുമുട്ടും ഹോക്കി ബെൽജിയത്തിലെ ആന്റ്വെർപ്പിൽ നടക്കുന്ന ഹോക്കി മത്സരത്തിൽ ഇന്ത്യ ബെൽജിയത്തിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി